സമ്പദ്ഘടനയ്ക്ക് ശക്തി പകരാൻ നിക്ഷേപ വർദ്ധന അവശ്യമെന്ന് പ്രധാനമന്ത്രി

ചികിത്സയിൽ

ഇന്നലെ രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു അതിഥി തൊഴിലാളി്കളെ ബസ് മാർഗം തിരിച്ചയയ്ക്കുക പ്രായോഗികമല്ലെന്ന് കേരളം

കടന്നു

ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരം ചുനി ഗോസ്വാമി ഇനി ഓർമ്മ

രാജ്യത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്നലെ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി

രാജ്യത്ത് നിലവിലുള്ള വ്യാവസായിക ഭൂമികളിൽ പ്തഗ് ആന്റ് പ്ലെ അടിസ്ഥാന സൌകര്യം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതും യോഗത്തിൽ ചർച്ച വിഷയമായി നിക്ഷേപകർക്ക് സഹായകരമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന അനുമതികൾ സമയബന്ധിതമായി ലഭിക്കുന്നതിനുപ്പു വേണ്ട സഹായം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു നിക്ഷേപങ്ങളുടെ പ്രോത്സാഹനത്തെയും വ്യാവസായിക് വളർച്ചയേയും തടയുന്ന തരത്തിലുള്ള തടസ്സങ്ങളെ ഒഴിവ്വാക്കുന്നതിന് സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കുന്നതും യോഗത്തിൽ ചർച്ച വിഷയമായി ആഭ്യന്തരമന്ത്രി ധനമന്ത്രിശ്പാണിജ്യ വ്യവസായ മന്ത്രി ധനകാര്യ സഹമന്ത്രി മുതിർന്ന ഉദ്യോഗ്സ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

ഇത് ശുഭസൂചകമാണ്

ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ടായിരുന്നു രാജ്യത്ത് രോഗികളുടെ എണ്ണം ഇരട്ടിച്ചിരുന്നത്

രാജ്യത്ത് വിപ്പിധ് ജില്ലകളിൽ ഗണ്യമായ ഇളവ് മെയ് നാലിനുശേഷം ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി

ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് രാജ്യത്തെ രോഗവ്യാപനം നിയന്ത്രിക്കാനാതായി മന്ത്രാലയം വിലയിരുത്തി

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അന്തർ സംസ്ഥാന അതിർത്തികളിൽ ട്രക്കുകളുടെ സ്വതന്ത്രമായ നീക്കം ഉറപ്പാക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു കാലിയായതുൾപ്പെടെ ഇത്തരം വാഹനങ്ങളുടെ ഗതാഗതത്തിന് പ്രത്യേകിച്ച് പാസ്സുകൾ ആവശ്യമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി

മഹാമാരി മൂലമുണ്ടായ ആഘാതം കുറയ്ക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിവിധ കമ്പനി മേധാവികൾ കേന്ദ്ര മന്ത്രിയുമായി ചർച്ച ചെയ്തു

മലപ്പുറത്തും കാസർകോടുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

മറ്റൊരാൾക്ക് സമ്പർക്കം മൂലമാണ് രോഗം പകർന്നത്

തിരുവന്തപുരത്തെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും കൊല്ലം ജില്ലയിലെ ഓച്ചിറ തൃക്കോവിൽവട്ടം പഞ്ചായത്തുകളും കോട്ടയത്തെ ഉദയനാപുരം പഞ്ചായത്തുമാണ് ഇന്നലെ ഹോട്സ് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയത് പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഇന്നലെ മുതൽ മാസ്ക് നിർബന്ധമാക്കിയിരുന്നു

ഇവർക്ക് തിരിച്ച് പോകാൻ നോൺ സ്റ്റോപ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു

ഇവർക്ക് തിരിച്ച് പോകാൻ പ്രത്യേക ട്രെയിൻ വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയ്ക്ക് കത്തയച്ചു

ഏറ്റവുമധികം പേർ രജിസ്റ്റർ ചെയ്ത്രത് ് യു എ ഇ

കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം ഒന്നര പതിറ്റാണ്ട് ഇടുക്കി രൂപതയുടെ അമരക്കാനായി പ്രവർത്തിച്ച ഇദ്ദേഹം കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി നിരവധി പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു